പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു

കുടിവെള്ളമെത്തിക്കാനുള്ള് ജിൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ആദ്യഘട്ട പ്രിപ്പൃത്തി ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കർഷകർക്ക് പെൻ്ട്ഷൻ ഉറപ്പാക്കുന്ന കർഷകക്ഷേമ നിധി ന് ബോർഡ് രൂപീകരിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം

കേരളാ കോൺഗ്രസ് എം ജോസ് വിഭാഗത്തിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ ചേരും ഐ

കിങ്ങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

സമ്പദ്വൃവസ്ഥ സജീവമാകുന്നതും വരാനിരിക്കുന്ന ഉത്സവങ്ങളും ശൈതൃകാലവും കണക്കിലെടുത്താണ് പ്രചാരണം ആരംഭിച്ചത്

മുഖാവരണം ധരിക്കാനും കൈകഴുകാനും മറക്കരുതെന്ന് പറഞ്ഞ അദ്ദേഹം സാമൂഹിക അകലം പാലിക്കാൻ രണ്ട് ഗജം ദൂരം പരിശീലിക്കണമെന്നും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇപ്പോൾ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ അതേപടി തുടരണമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി ഒറ്റക്കെട്ടായി പോരാടി കോവിഡിനെ അതിജീവിക്കുള്ള്ന്നും പറഞ്ഞു

നമ്മുടെ വ്യോമാതിർത്തി സുരക്ഷിതമാക്കുന്നതിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ദുരന്തനിവാരണത്തിലും വ്യോമസേന നൽകുന്ന സംഭാവനകൾക്ക് രാജ്യം കടപ്പെട്ടിരിക്കുന്നെന്ന് തന്റെ സന്ദേശത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഇന്ത്യൻ വ്യോമസേനയിലെ ധീരരായ എല്ലാ യോദ്ധാക്കളെയും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിനന്ദിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമസേന ദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്നു

എം മുബാറക് പാഷയെ വൈസ് ചാൻസലറായി നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ

തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുമായി സീറ്റ് ധാരണയിലെത്തുന്ന കാര്യം യോഗം പരിഗണിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ കോട്ടയത്ത് അറിയിച്ചു

ബാലൻ കെ

കാവുകളിലെ സസ്യജാലത്തെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷക സംഘം കൂനയിലെ ആയിരവില്ലിക്കാവിൽ കണ്ടെത്തിയ കാവിലിപ്പയുടെ വിശേഷങ്ങളറിയാം വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ

കേരളപ്പിറവി ദിനത്തിൽ ഇടുക്കി ജില്ലയിൽ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നൂറ് കർഷക വിപണികൾ ആരംഭിക്കും ഭക്ഷ്യാൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന തിനുളള സംസ്ഥാന സർക്കാരിന്റെ മുഹാ്യജ്ഞമായ സൂഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷക വിപണികൾ സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്

ബാലൻ ഇടുക്കി ഉറുമ്പള്ള് പട്ടിക്ജാതി കോളനി കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനവും അംഗൻവാടി കെട്ടിട പൂർത്തീകരണ പ്രഖ്യാപന വും സംസ്ഥാന പട്ടികജാതി പട്ടിക വർഗ ക്ഷേമ വകുപ്പ് മന്ത്രി എ

ബാലൻ ഓൺലൈനായി നിർവഹിച്ചു

എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് കിങ്ങ്സ് ഇലവൻ പഞ്ചാബിനെ നേരിടും

ഓഹരി വിപണി രാജ്യത്തെ ഓഹരി സൂചികകളിൽ നേട്ടം തുടരുന്നു

സ്വർണ വിലയിൽ മാറ്റമില്ല

പോപ്പുലർ ഫൈനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ പോപ്പുലർ ഫൈനാൻസിന്റെ കീഴിലുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും അടയ്ക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും ജില്ലാ കളക്ടർ എസ് സുഹാസ് ഉത്തരവിട്ടു